വരാപ്പുഴ കസ്റ്റഡി മരണ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കുളള ആവശ്യം സ്പീക്കർ തളളി

വീണ്ടും സമ്മേളിച്ചപ്പോഴും പ്രതിപക്ഷ ബഹളം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി സ്പീക്കർ അറിയിച്ചു

കൃത്യനി്ർവ്വഹണം തടസ്സപ്പെടുത്തിയതിന് ഉസ്മാനെതിരെയും കേസെടുത്തു